വാഗിർമുങ്ങിക്കപ്പൽ നാവികസേന നീറ്റിലിറക്കി

നീക്കങ്ങൾ ബിഹാറിൽ സജീവം എൻഡിഎ യോഗം ഇന്ന്

വോട്ടർമാർ

ക്രിക്കറ്റ്ടീം സിഡ്നിയിലെത്തി

പ്രതിസന്ധിനേരിടുന്ന വ്യവസായങ്ങളെ സഹായിക്കാനും പണലഭ്യത ഉറപ്പാക്കാനും നിർമാണ റിയൽഎസ്റ്റേറ്റ് മേഖലയെ ഊർജ്ജവത്താക്കാനും കർഷകരെ പിന്തുണയ്ക്കാനും പുതിയ പ്രഖ്യാപനങ്ങൾ വഴിവെയ്ക്കുമെന്നും പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിച്ചു

വിദ്യാഭ്യാസം ആയുർവേദ പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം പാരമ്പര്യം വൈദ്യശാസ്ത്രത്തിന്റെ വളർച്ചയുടെ ചുവടുവയ്പ്പു കൂടിയാണ് ഈ സ്ഥാപനങ്ങളിലൂടെ ലക്ഷ്യമിടുന്നത്

ആയുർവേദ വിദ്യാഭ്യാസത്തിന്റെ നിലവാരമുയർത്താൻ സ്വയംഭരണ സംവിധാനത്തിലൂടെ ഈ സ്ഥാപനങ്ങൾക്ക് കഴിയും

ന്യൂസ്ഡസ്ക് ആകാശവാണി

മ്യാൻമാറിലെ ജനാധിപതൃ പരിവർത്തനത്തിന്റെ നിർണ്ണായക ചുവടുവയ്പ്പാണ് വിജയകരമായ തെരഞ്ഞെടുപ്പെന്ന് അദ്ദേഹം ട്വീറ്റ് ചെയ്തു മ്യാൻമാറുമായുള്ള പരമ്പരാഗത സൌഹൃദം കൂടുതൽ ദൃഢമാക്കാൻ തുടർന്നും ഒരുമിച്ച് പ്രവർത്തിക്കുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു

സ്കോർപ്പിൻ ക്ലാസ് വിഭാഗത്തിൽപ്പെട്ട അഞ്ചാമത്തെ മുങ്ങിക്കപ്പലാണ്

മന്ത്രിസഭാ രൂപീകരണം ചർച്ച ചെയ്യാൻ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ യോഗം ഇന്നു ചേരും സത്യപ്രതിജ്ഞയുടെ തീയതി തീരുമാനിച്ചിട്ടില്ലെന്ന് തെരഞ്ഞെടുപ്പിനു ശേഷമുള്ള ആദ്യവാർത്താസമ്മേളനത്തിൽ ജെഡിയു അദ്ധ്യക്ഷൻ നിതീഷ്കുമാർ പറഞ്ഞു

സഖ്യകക്ഷിയായ ഹിന്ദുസ്ഥാനി അവാംമോർച്ച നേതാവ് ജിതൻറാം മാഞ്ചി ഇന്നലെ നിതീഷ്കുമാറുമായി ചർച്ച നടത്തി അതേസമയം മഹാഗഡ്ബന്ധൻ മുന്നണി നേതാവായി ആർജെഡി നേതാവ് തേജസ്വിയാദവിനെ തെരഞ്ഞെടുത്തു

വന്ദേഭാരത് മിഷന്റെ എട്ടാം ഘട്ടം ഈ മാസം ആദ്യം മുതൽ പ്രവർത്തനം ആരംഭിച്ചതായും വിദേശകാര്യവക്താവ് അനുരാഗ് ശ്രീവാസ്തവ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു

ദീസയിലെ എയർഫോഴ്സ് സ്റ്റേഷന്റെ അടിസ്ഥാന സൌകര്യവികസന പ്രവർത്തനങ്ങൾ അദ്ദേഹം വിലയിരുത്തി ഇന്നലെ വഡോദരയിലെ എയർഫോഴ്സ് സ്റ്റേഷനിലും എയർ മാർഷൽ സന്ദർശനം നടത്തിയിരുന്നു

ഏറ്റവും കൂടുതൽ വോട്ടർമാർ മലപ്പുറം ജില്ലയിലും ഏറ്റവും കുറവ് വയനാട്ടിലുമാണ്

തീർഥാടകർക്ക് പ്രവേശനമില്ല

കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ചടങ്ങുകൾ

വ്യാജ ജാതി സർട്ടിഫിക്കറ്റുമായി നിയമനം നേടിയ എല്ലാ ഉദ്യോഗസ്ഥരും ഉടൻ പിരിച്ചു വിടാൻ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗേൽ നിർദ്ദേശം നൽകി

മലയോര മേഖലയിൽ ഇടിമിന്നൽ സജീവമാകാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത് പ്രേണം